തോമസ് ഐസക് ഇന്ന് ഉച്ച കഴിഞ്ഞ് കേന്ദ്ര ധൻമന്ത്രിയെ കാണും

് ് ് ് കേരളത്തിലെ മഴക്കെടുതിയും ഉരുൾപൊട്ടലും മൂലമുണ്ടായ നാശനഷ്ടം വിലയിരുത്താൻ കേന്ദ്രസംഘം ഇന്ന് രാത്രിയോടെ കൊച്ചിയിലെത്തും ആഭ്യ ന്തര വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ബി

കേരളത്തിലെ പ്രളയബാധിതർക്ക് സഹായമെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ മലയാളികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചർച്ച നടത്തും ന്യൂയോർക്കിലെ റോക്ലാൻഡ് കൌണ്ടിയിൽ ക്രൌൺ പ്ലാസയിലാണ് വൈകിട്ട് യോഗം ചേരുന്നത് കേരളത്തിന് പ്രത്യേക പ്രളയ ദുരിതാശ്വാസ നടപടികൾ അഭ്യർഥിക്കുന്ന തിന് മന്ത്രി ഡോ തോമസ് ഐസക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ധനമന്ത്രി അരുൺജ യ്റ്റ്ലിയെ കാണും ചരക്ക് സേവന നികുതിയിൽ സെസ്സ് ഏർപ്പെടുത്തുന്നത ടക്കം കാര്യങ്ങൾ ജയ്റ്റ്ലിയുമായി ചർച്ച ചെയ്യുമെന്ന് ഡോ തോമസ് ഐസക് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാനത്തിന്റെ കടപരിധി മൂന്നര ശതമാനത്തിൽ നിന്ന് നാലര ശതമാനമാക്കണമെന്ന ആവശ്യവും അദ്ദേഹം ജയ്റ്റിലിയോട് ഉന്നയിക്കും പ്രളയത്തിൽ രക്ഷാ പ്രവർത്തനം നടത്തിയ മത്സൃത്തൊഴിലാളികളെ ഗവൺമെന്റ് പൂർണമായും അവഗണിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കേടായ വള്ളങ്ങൾക്ക് പകരം പുതിയ വള്ള ങ്ങൾ നൽകുമെന്ന് വകുപ്പ് മന്ത്രി പറയുന്നതല്ലാതെ ഇതുവരെ നടപടി യായില്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി ആരും ക്ഷണിക്കാതെ ദുരന്തമുഖത്ത് രക്ഷാകവചം തീർത്ത മത്സ്യത്തൊഴിലാളികളോട് ഗവൺമെന്റ് കാണിച്ചത് കൊടിയവഞ്ചനയാണെന്നും അദ്ദേഹം പറഞ്ഞു കെപിസിസി പ്രസിഡന്റ് സ്ഥാനം വെല്ലുവിളിയാണെന്ന നിയുക്ത കെപിസി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു പുതിയ നേതൃത്വത്തെ എല്ലാ പ്രവർത്തകരും സ്വാഗതം ചെയ്യുമന്നാണ് പ്രതീക്ഷിക്കുന്നത്

സുധാകരൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണെന്നും അദ്ദേഹം അതൃപ്തി രേഖപ്പെടു ത്തുമെന്ന് കരുതുന്നില്ലെന്നും മുല്ലപ്പള്ളി ഡൽഹിയിൽ പറഞ്ഞു ഉച്ചക്ക് ശേ ഷം മാധ്യമങ്ങളെ കാണുമെന്നും അദ്ദേഹം അറിയിച്ചു വിവിധ മേഖലകളിൽ തഴക്കവും പഴക്കവുമുള്ള നേതൃത്വത്തെയാണ് കെ

സിക്ക് ലഭിച്ചതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീ രൻ പറഞ്ഞു നിലവിലെ സംഘടനാ രീതികളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും ഇക്കാര്യം നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു പാർട്ടി ഏൽപിച്ച ഉത്തരവാദിത്വം ഫലപ്രദമായും കാര്യക്ഷമമായും ഉപയോ ഗിച്ചുവെന്ന ചാരിതാർഥ്യത്തോടെയാണ് കെപിസിസി പ്രസിഡന്റ് സ്ഥാനം ഒഴി യുന്നതെന്ന് എം എം ഹസ്സൻ പറഞ്ഞു ഒന്നര വർഷത്തെ പ്രവർത്തനത്തിനിട യിൽ പാർട്ടിയെ കൂടുതൽ ഊർജസ്വലമാക്കാനായി പാർട്ടിയിൽ സമാധാനാ ന്തരീക്ഷം ഉണ്ടാക്കുവാൻ സാധിച്ചുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാ ധ്യമങ്ങളോട് പറഞ്ഞു ഓഖി പ്രളയ ദുരന്ത സമയങ്ങളിൽ കോൺഗ്രസ് പ്ര വർത്തകരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുപ്പിക്കാൻ സാധിച്ചു നേതാക്കളുടെ ശക്തമായ പിന്തുണയാണ് ഇതിന് കാരണമായതെ ന്നും തുടർന്നും നേതൃത്വവുമായി പൂർണമായും സഹകരിച്ച് പ്രവർത്തിക്കുമെ ന്നും ഹസ്സൻ പറഞ്ഞു കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു കെപിസിസി നേതൃമാറ്റം സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്ര വർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹൈക്കമാന്റിന്റെ തീരു മാനം എല്ലാവരും അംഗീകരിക്കുമെന്നാണ് വിശ്വാസം നേതൃതീരുമാനങ്ങൾ ഒ റ്റക്കെട്ടായി അനുസരിച്ച ചരിത്രമാണ് പാർട്ടിക്കുള്ളതെന്നും ഉമ്മൻചാണ്ടി പറ ഞ്ഞു കന്യാസ്ത്രീ പീഡനക്കേസിൽ ജലന്തർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ പോ ലീസ് തുടർച്ചയായ രണ്ടാം ദിവസവും ചോദ്യം ചെയ്യുന്നു തൃപ്പൂണിത്തുറ ക്രൈം ബ്രാഞ്ച് എസ് പി ഓഫീസിലെ ഹൈടെക് സെല്ലിലാണ് ചോദ്യം ചെയ്യൽ തുട രുന്നത്

ബിഷപ്പിനെ അന്വേഷണ സംഘം ഇന്നലെ തുടർച്ചയായി ഏഴ് മണി ക്കൂർ ചോദ്യം ചെയ്തിരുന്നു ് ് ് ് ് ് ് കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമ തടസ്സമൊന്നുമില്ലെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണ സംഘ ത്തിന് സ്വതന്ത്രമായി തീരുമാനം എടുക്കാം ഹൈക്കോടതിയിലെ ജാമ്യഹർജി അറസ്റ്റിന് തടസ്സമല്ലെന്നും ബെഹ്റ അറിയിച്ചു

കഴിഞ്ഞ മൂന്നു ദിവസമായി നിരാഹാരം അനുഷ്ഠിച്ച കന്യാസ്ത്രീ യുടെ സഹോദരിയെ ആരോഗ്യനില വഷളായതിനെത്തുടർന്ന് ഇന്നലെ ആശു പത്രിയിലേക്ക് മാറ്റി മഹാരാജാസ് കോളജ് വിദ്യാർഥി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രധാനപ്രതികളിൽ ഒരാൾ പൊലീസിൽ കീഴടങ്ങി ക്യാംപസ് ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി ആരിഫ്ബിൻ സലീം ആണ് കീഴടങ്ങിയത് കൊലപാതകത്തിന് ആളു കളെ ഏർപ്പെടുത്തിയത് ഇയാളാണെന്ന് പൊലീസ് പറയുന്നു അഭിമന്യുവിനെ നേരിട്ട് ആക്രമിച്ചതിലും ഇയാൾക്ക് പങ്കുള്ളതായി പൊലിസ് പറയുന്നു ആരിഫ്ബിൻ സലീമടക്കം എട്ട് പ്രതികൾക്കെതിരെ കേസ്വിൽ പൊലിസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു

മുത്തലാഖ് ഓർഡിനൻസിനെ കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ ഫുട്ബോളായി ഉപയോഗിക്കുകയാണെന്ന് കോൺഗ്രസ് കൂറ്റപ്പെടുത്തി മുസ്ലിം സ്ത്രീകളുടെ ക്ഷേമത്തേക്കാൾ ഉപരി വോട്ടിനുവേണ്ടിയാണ് മുത്തലാഖ് വിഷയം ബി

പിഉപയോഗിക്കുന്നതെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജെവാല ന്യൂഡൽഹി പറഞ്ഞു മുത്തലാഖ് നീതിയും തുല്യതയും ഉറപ്പുവരുത്തുന്ന വിഷയമാണ് കൌശലം അടിച്ചമർത്തൽ അട്ടിമറി പ്രവർത്തനം തുടങ്ങിയവയാണ് ബി

വഞ്ചനയുടെയും അധാർമികതയുടെയും മുഖമുദ്രയായി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് മാറിയെന്നും അദ്ദേഹം കോൺഗ്രസിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും സുർജെവാല കുറ്റപ്പെടുത്തി ലഘുസമ്പാദ്യ പദ്ധതികളുടെ പലിശനിരക്ക് ഗവൺമെന്റ് വർധിപ്പിച്ചു

ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മൂന്ന് മാസത്തേക്കാണ് പലിശ കൂട്ടുന്നത് അഞ്ച് വർഷ ടേം ഡെപ്പോസിറ്റുകൾക്കും മുതിർന്ന പൌരൻമാരുടെ നിക്ഷേപങ്ങൾക്കും ആനുപാതികമായി വർധന വരു ത്തിയിട്ടുണ്ട് എന്നാൽ സേവിങ്സ് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പലിശ നിരക്ക് നാല് ശതമാനമായി തുടരുമെന്ന് ധനമന്ത്രാലയം ഡൽഹിയിൽ അറിയിച്ചു ജീവനക്കാരുടെ അനാസ്ഥമൂലം ജെറ്റ് എയർവേയ്സ് വിമാനത്തിൽ യാത്രക്കാ രുടെ മുക്കിൽനിന്നും ചെവിയിൽനിന്നും രക്തം വന്നതിനെ തുടർന്നു വിമാനം മുംബൈയിൽ തിരിച്ചിറക്കി

യാത്രക്കാർക്ക് ഓക്സിജൻ മാസ്ക് നൽകി സാഹചരൃം നിയന്ത്രിച്ചു

നിരവധി തവണ താഴ്ന്നും ഉയർ ന്നും പറന്നതിന് ശേഷമാണ് വിമാനം റൺവേ തൊട്ടത് പരീക്ഷണ പറക്കൽ വിജയകരമായിരുന്നുവെന്ന് സിയാൽ മാനേജിങ് ഡയറക്ടർ വി തുളസീദാസ് വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വരും ദിവസങ്ങളിൽ മറ്റു കമ്പനികളുടെ വിമാനങ്ങളും പരീക്ഷണപറക്കലിനായി എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാകുന്നതോ ടെ ഇതുസംബന്ധിച്ച റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് കൈമാറും

അടുത്ത മാസം അവസാനത്തോടെ വിമാനത്താവളം ഉദ്ഘാടനം ചെ യ്യാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ഒരു ദിവസത്തിന് ശേഷം സംസ്ഥാനത്ത് പെട്രോൾ വില വീണ്ടും വർധിച്ചു

ഡീസൽ വിലയിൽ ഇന്ന് മാറ്റമില്ല പൊലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങൾ സമർപ്പിക്കുന്ന പരാതികളിൽ രസീത് നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മിഷൻ ഉത്ത രവ് പൊലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്ന പരാതികൾ ജി ഡി രജിസ്റ്ററിൽ രേഖ പ്പെടുത്തുകയോ രസീത് നൽകുകയോ ചെയ്യാത്തത് സംബന്ധിച്ച പരാതിയി ലാണ് ഉത്തരവിട്ടത് കോഴിക്കോട് ജില്ലയിൽ കാറികളിലെ പരിശോധന ഇന്നും തുടരും സബ്കല ക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ സംഘമാണ് പരിശോധന നടത്തുന്നത്

കാസർകോട് മുളിയാർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഔദ്യോഗിക പട്ടികയിലെ നാല് പേർ മത്സര്രംഗത്ത് നിന്ന് പിൻമാറി നേതാക്കളുടെ പോരിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ മത്സരിക്കുന്ന മൂളിയാർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഡി സി സി പ്രഖ്യാപിച്ച സ്ഥാനാർഥി പട്ടികയിലെ നാല് പേരാണ് പിൻമാറിയത്

കുഞ്ഞാണി മുസ്ലിയാ രുടെ ഖബറടക്കം അൽപസമയത്തിനകം എടപ്പറ്റ ജുമാ മസ്ജിദിൽ നടക്കും പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ അധ്യാപകനും കരുവാരക്കുണ്ട് ദാറുന്നജാത്ത് വൈസ്പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം ഇടുക്കി ശാന്തമ്പാറ പഞ്ചായത്തിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു ചിന്നക്കനാൽ മൂലത്തറ എസ്റ്റേറ്റിലെ വാച്ചർ തമിഴ്നാട് ബോഡിനാക്കന്നൂർ സ്വദേശി മുത്തയ്യാണ് മരിച്ചത്